ഇന്ന് രാജ്യത്തെ സ്കൂൾ വിദ്യാർത്ഥികളുമായി സംവദിക്കും

നാമനിർദ്ദേശ പത്രികകൾ ഇന്ന് സമർപ്പിക്കും

വിക്കറ്റ് ജയം പരമ്പരയും ഇന്തൃയ്ക്ക്

സ്കൂൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ പേടിയും മാനസിക പിരിമുറുക്കവും എങ്ങനെ ഒഴിവാക്കാം എന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി സംസാരിക്കും

പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ലക്ഷ്യമിട്ടാണ് പരീക്ഷാ പേ ചർച്ച സംവാദ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്

കേന്ദ്ര മാനവ വിഭൂവശേഷി വികസന മന്ത്രാലയം ഒൻപത് മുതൽ പ്ലസ് ടു വരെയുള്ളപ്പിക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ ലഘു ഉപ്പിയ്യാസ മൽസരത്തിൽ വിജയികളായ വിദ്യാർത്ഥികളാണ് പരിക്ട്ടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം ജനുവരിയിൽ നടന്ന പരീക്ഷാ പേ ചർച്ചയുടെ രണ്ടാം പതിപ്പിൽ പഠനത്തിൽ സമയക്രമീകരണത്തി്ന്റെ ആ്വശ്യകത എന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് ആക്ട്മശ്ര്യാണിയും ദൂരദർശന്റെ വിവിധ ചാനലുകളും പരിപാടി തൽസ്മയം ജനങ്ങളിലേക്കെത്തിക്കും

ചെന്നൈയിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ തമിഴും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തമിഴ് സ്റ്റഡീസും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാതൃഭാഷകൾ സംരക്ഷിക്കാൻ ദേശീയ യജ്ഞം തന്നെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ത്യൻ ഭാഷകളുടെ സമ്പന്ന പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കാനും സംരക്ഷിക്കാനും നൂതന സാങ്കേതിക വിദ്യകളെ പരമാവധി പ്രയോജനപ്പെടുത്തണം മാതൃഭാഷകളിൽ എഴുതാനും ആശയവിനിമയം നടത്താനും മടിക്കരുതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു

മുതിർന്ന നേതാവും പാർട്ടി സംഘടന തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള രാധാമോഹൻ സിംഗാണ് ഇത് സംബന്ധിച്ചു പ്രഖ്യാപനം നടത്തിയത് നേതൃസ്ഥാനത്തേക്ക് ബിജെപി വർക്കിങ് പ്രസിഡന്റ് ജെ

കഴിഞ്ഞ അഞ്ചര വർഷമായി ശ്രീ അമിത്ഷായാണ് പാർട്ടി അദ്ധ്യക്ഷനായി തുടരുന്നത്

അമിത് ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായതോടെയാണ് ഒരു വ്യക്തി ഒരു പദവി എന്ന നയം പിൻതുടരുന്ന ബിജെപി യിൽ പുതിയ അദ്ധ്യക്ഷനായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

കഴിഞ്ഞ വർഷം ഏപ്രിൽ ഒന്നിനാണ് വിചാര്യ്ക്ക് ക്കോടതി വദ്രയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് ചില വസ്തുതകൾ പ്രിമീഗണ്ണിക്കാതെയാണ് വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചുതെന്റ് ചൂണ്ടിക്കാട്ടിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജാമ്യൂം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടു

ഗൊരഖ്പൂരിൽ ബിജെപി സംഘടിപ്പിച്ച റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പൌരത്വ നിയമ ഭേദഗതിയെ സംബന്ധിച്ചുള്ള യഥാർത്ഥ വസ്തുത പ്രചരിപ്പിക്കേണ്ടത് ഓരോ പൌരന്റെയും പ്രത്യേകിച്ച് യുവാക്കളുടെ കടമയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കളിക്കളത്തിൽ അന്തരിച്ച ഫുട്ബോൾ താരം ധനരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ സംഘടിപ്പിച്ച മത്സരം തുടങ്ങുന്നതിനു മുൻപ് ഇന്നലെ രാത്രിയായിരുന്നു അപകടം

മരിച്ചവരിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നതായി സൈനിക വക്താവ് അറിയിച്ചു നഹാം മേഖലയിൽ ഹൂതികൾക്ക് ്നേരെ നടന്ന സൈനിക നടപടിക്ക് പിന്നാലെയാണ് ഡ്രോൺ ആക്രമണം

രാജ്യ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ നടന്ന പ്രക്ഷോഭത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത് അഴിമതിക്കാരായ രാഷ്ട്രീയക്കാർ നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒക്ടോബറിലാണ് രാജ്യത്ത് പ്രതിഷേധം ആരംഭിച്ചത്

പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജനക്കൂട്ടം അക്രമാസക്തരായത്

ബ്രസീലിയൻ കൊടും കുറ്റവാളികൾ അടങ്ങുന്ന സംഘമാണ് തടവ് ചാടിയത്

സെഞ്ചറി നേടിയ രോ്ഹിത് ശർമ്മയുടെയും അർദ്ധ സെഞ്ചറി നേടിയ വിരാട് കോഹ്ലിയുടെയും ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത് ഓസ്ട്രേലിയക്കെതിരായ ഏകദിനത്തിൽ രോഹിത് ശർമ്മ നേടുന്ന എട്ടാമത്തെ സെഞ്ചറിയാണിത് രോഹിത് ശർമ്മ കളിയിലെ കേമനായും വിരാട് കോഹ്ലിയാണ് പരമ്പരയിലെ കേമനായും തെരഞ്ഞെടുക്കപ്പെട്ടു

നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ജപ്പാനെ നേരിടും